ഏഴു ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തുടക്കം

ന് ഗുജറാത്തിലെ പ്രമുഖ കോൺഗ്ഗ്ലസ് നേതാവ് അൽപേഷ് താക്കൂർ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു്

കേരള രാഷ്ട്രീയത്തിലെ അതികായൻ കെ

അന്ത്യാഞ്ജലി

എല്ലിൽ പഞ്ചാബിനെതിരെ മുംബൈയ്ക്ക് ആവേശോജ്ജ്വല ജയം

എന്നാൽ നക്സൽബാധിത മേഖലകളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില മേഖലകളിലും പോളിംഗ് സമയത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽപ്രദേശ് എന്നിവിടങ്ങളിൽ സംസ്ഥാന നിയമസഭയിലേയ്ക്കുള്ള വോട്ടെടുപ്പും ഇന്ന് ഒറ്റഘട്ടമായി നടക്കും

കേന്ദ്രമന്ത്രിമാരായ വി

സിങ്ങ് മഹേശ് ശർമ്മ സത്യപാൽ സിംഗ് നിതിൻ ഗഡ്കരി തുടങ്ങിയവർ ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖരിൽ പെടുന്നു

വിവിധ മണ്ഡലങ്ങളിൽ സുരക്ഷയൊരുക്കാൻ സംസ്ഥാന പോലീസ് സേനാംഗങ്ങളെ കൂടാതെ അർദ്ധ സൈനിക വിഭാഗത്തെയും നിയോഗിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത്തരം സൃഷ്ടികൾ പ്രചാരണവേളയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇടയുള്ളതായും ചലച്ചിത്രമായോ മറ്റ് ഇലക്ട്രോണിക് മീഡിയ വഴിയോ അവ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നും കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നു

തനിക്കേറ്റ വഞ്ചനയും അപമാനവും കാരണമാണ് പാർട്ടി വിടുന്നതെന്ന് സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ അമിത് ചൌഡക്ക് എഴുതിയ രാജി കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി തന്റെ സമുദായത്തിലുളള പാവപ്പെട്ട യുവജനങ്ങൾ അവഹേളിക്കപ്പെടുന്നതിൽ നിരാശനാണെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ പാർട്ടി വടുന്നത് ബി ജെ പി യിൽ ചേരാനല്ലെന്നും ചോദ്യങ്ങൾക്കു മറുപടിയായി ശ്രീ അൽപേഷ് താക്കൂർ മാധ്യമ പ്രവർത്തകരോടുപറഞ്ഞു

മുഖ്യ എതിരാളി സേനാ തലവനായ ബെന്നി ഗാന്റ്സുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിജയം ഇസ്രായേൽ ജനാധിപത്യ രാഷ്ട്രമാണെന്നും പൊതുജനാഭിപ്രായം മാനിക്കുന്നുവെന്നും ആർമി ചീഫ് ബെന്നി ഗാന്റ്സ് മാധ്യമങ്ങളോട് പറഞ്ഞു

അവസാന പന്തുവരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ മൂന്ന് വിക്കറ്റുകൾക്കാണ് മുംബൈ പരാജയപ്പെടുത്തിയത്

സീസണിൽ മൂന്ന് അർദ്ധസെഞ്ചറി നേടിയ രാഹുലിന്റെ ടൂർണമെന്റിലെ ആദ്യ സെഞ്ചറിയാണിത് ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും

സി യും ഗോവയും ഏറ്റുമുട്ടും ഇന്നലെ നടന്ന രണ്ടാം സെമിയിൽ എ ടി

ഇന്നലെ രാത്രി വൈകി കോട്ടയത്തെത്തിച്ചു നേതാവിന്റെ ഭൌതിക ശരീരം ഒരുനോക്കു കാണാൻ പതിനായിരങ്ങളാണ് എത്തിയത് കേരള കോൺഗ്രസ് പിറവിക്ക് സാക്ഷ്യം വഹിച്ചു കോട്ടയം തിരുനക്കര മൈതാനത്തെ മന്നം സ്മാരക വേദിയിൽ കെ

മാണിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ രാത്രി വൈകിയും വൻ ജനാവലി എത്തി ശവസംസ്കാര ശുശ്രൂഷ ഉച്ചകഴിഞ്ഞ രണ്ടിന് പാലാ കൊട്ടാരമറ്റത്തെ കരിങ്ങോഴയ്ക്കൽ വീട്ടിൽ ആരംഭിക്കും

എസ് സമർപ്പിക്കാനുള്ള കാലാവധിയും നാളത്തേയ്ക്ക് ദീർഘിപ്പിച്ചിട്ടുണ്ട്

കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ പ്ലാറയിൽവേ പ്രതിരോധ സേന എന്നീ വിഭാഗങ്ങളിലെ ജീവനക്കാരുട്ട പ്രോവിഡന്റ് ഫണ്ടുകളുടെ പലിശനിരക്കാണ് മാറ്റമില്ലാതെ രൂട്രുക

ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ശാസ്ത്രജ്ഞരുടെ അപൂർവ്വ നേട്ടം

കറുത്ത ഒരു വൃത്തത്തിനു ചുറ്റും പ്രഭാവലയങ്ങളോടുകൂടിയ തമോഗർത്തത്തിന്റെ ചിത്രമാണ് ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടത് പ്രകാശം പോലും അകത്തേക്ക് വലിക്കുന്നതിനാൽ തമോഗർത്തത്തിന്റെ ചിത്രമെടുക്കാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല

തമോഗർത്തങ്ങളുടെ നിലനിൽപ്പ് ശരിവയ്ക്കുന്നതാണ് ചിത്രങ്ങളെന്ന് ജ്യോതിശാസ്ത്രജ്ഞനും പ്രോജക്ട് ഡയറക്ടറുമായ ഷെപേഡ് ഡ്ടോൾമാൻ അറിയിച്ചു